സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപ്പീകരണത്തിന് ശ്രമം തുടങ്ങി ത്രിപുര തെരഞ്ഞെടുപ്പിലെ പ്രാജയ കാരണങ്ങൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് സി

എം പൊളിറ്റ് ബ്യൂറോ വിശാല ഇടത് മതേതര ജനാധിപത്യ ചേരിയുടെ അനി വാര്യതയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് സി

സംസ്ഥാനത്തെ ലഹരി മരുന്ന് മാഫിയകൾക്കെ തിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ടി പി രാമ കൃഷ്ണൻ മലപ്പുറത്ത് സി

ഐ സംസ്ഥാന സമ്മേളനത്തിന്

സംസ്ഥാന കോളേജ് ഗെയിംസിൽ കോതമംഗലം മാർ അത്തനേഷ്യസിന് ഓവറോൾ കിരീടം ത്രിപുര നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് ശ്രമങ്ങൾ തുടങ്ങി

പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടു ക്കുന്ന ദൌത്യം നിരീക്ഷകർക്കാണ് അരുൺസിംഗ് ജെ

മൂന്നുതവണ മുഖ്യമന്ത്രിയാ യിരുന്ന നൈഫ്യൂ റിയോ യെ സഖ്യത്തിന്റെ നേതാവായി തീരു മാനിച്ചിട്ടുണ്ട്

നേരത്തെ ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വിജയം വിലയിരുത്തിയ അമിത്ഷാ ത്രിപുരയിലെയും നാഗാ ലാന്റിലെയും വിജയം വരാനിരിക്കുന്ന ലോക്സഭാ തെര ഞ്ഞെടുപ്പിന്റെയും കർണ്ണാടക നിയമസഭാ തെരഞ്ഞെ ടുപ്പിന്റെയും സൂചനയാണെന്ന് അഭിപ്രായ്പ്പെട്ടു പ്രധാ നമന്ത്രിയുടെ നയങ്ങൾക്ക് ജനങ്ങൾ നൽകിയ സ്വീകാ രൃതയാണ് വിജയത്തിന് വഴിയൊരുക്കിയതെന്നും അമിത് ഷാ പറഞ്ഞു

തിപുര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബിജെ പിയെ നേരിടാൻ കഴിയുന്ന വിശാല ഇടതു മതേതര ജനാ ധിപത്യ ചേരിയുടെ അനിവാര്യതയെക്കുറിച്ച് ചിന്തിക്ക ണമെന്ന് സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അഭിപ്രായപ്പെട്ടു

ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലം ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് സി

ഐ ദേശീയ സെക്രട്ടറി ഡി രാജ പറഞ്ഞു ത്രിപുരയിലെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചതെങ്ങനെയെന്ന് വില്ലയിരുത്തേ ണ്ടിയിരിക്കുന്നു

എസ് എസ് എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ച തെരഞ്ഞെടുപ്പാണിതെന്നും ബി ജെ പിയുടെ വിജയം ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമല്ല രാജ്യത്തെ മതേ തര ജനാധിപത്യ ശക്തികൾക്കെല്ലാം തിരിച്ചടിയും ഭീഷ ണിയുമാണെന്ന് രാജ മലപ്പുറത്ത് വിലയിരുത്തി ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലം മതേതര ജനാധിപത്യ കക്ഷികൾ ഒന്നിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്ത മാക്കുന്നതാണെന്ന് മുസ്ലീംലീഗ് സംസ്ഥാന ജനറൽ സെക്ര ട്ടറി കെ

എ മജീദ് പറഞ്ഞു

എമ്മിന്റെ ഉറച്ച കോട്ടയിൽ പോലും കോൺഗ്രസ്സിന്റെ സഹായമില്ലാതെ ബി ജെ പിയെ നേരിടാൻ കഴിയില്ലെന്ന വാസ്തവം ഉൾക്കൊ ള്ളാനും അന്ധമായ കോൺഗ്രസ് വിരോധം അവസാനിപ്പി ക്കാനും ഇടതു പാർട്ടികൾ തയ്യാറാകണമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു

ടി രമേശ് പറഞ്ഞു

സി മോർച്ച സംസ്ഥാനതല ശില്പശാല പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് മാഫിയകളെ തുരത്താൻ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ജനകീയ പങ്കാളിത്തതോടെ ഇത്തരക്കാരെ ചെറുക്കും ലഹരി സാധന്നങ്ങളുടെയും മയക്കുമരുന്നിന്റെയും പ്രഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തി നശി പ്പിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വിദ്യാലയങ്ങൾ കേന്ദ്രീ കരിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളു മായി ചേർന്ന് പ്രവർത്തിക്കാൻ എക്സൈസ് വകുപ്പ് നട പടിയെടുത്തു കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു ഇരിട്ടി എക്സൈസ് സർക്കിൾ ഓഫീസ് മട്ടന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

വൈകിട്ട് റെഡ് വളന്റിയർ മാർച്ചിനും പ്രകടനത്തിനും ശേഷം പൊതുസമ്മേളനം ദേശീയ സെക്രട്ടറി എസ് സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പുകൾ ഇന്ന് നടക്കും

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെ യു

എഫ് ആരംഭിച്ച രാപ്പകൽ സമരം തുടരുന്നു സംസ്ഥാനത്ത് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തി ലാണ് ഇന്നലെ സമരം ആരംഭിച്ചത്

കോഴിക്കോട്ട് സമാപിച്ച സംസ്ഥാന കോളേജ് ഗെയിം സിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓവ റോൾ ്കിരീടം നേടി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് രണ്ടാം സ്ഥാനവും തൃശൂർ കേരളവർമ്മ മൂന്നാം സ്ഥാനവും നേടി പുരുഷ വിഭാഗം അത്ലറ്റിക്സിലും ഫുട്ബോളിലും ചാമ്പ്യൻഷിപ്പ് നേടിയാണ് കോതമംഗലം എം എ കോളേജ് രാജീവ്ഗാന്ധി ട്രോഫി നേടിയത് വനിതാ വിഭാഗം അത് ല റ്റി ക് സിൽ പാല അൽഫോൺസ കോളേജാണ് ജേതാക്കൾ ചങ്ങനാശ്ശേരി അസംപ്ഷൻ രണ്ടാം സ്ഥാനവും കോതമംഗലം എം

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് യോഗ്യത അവസാന ലീഗ് മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചതോടെയാണ് കേരള ടീമിന് സൂപ്പർ കപ്പ് യോഗ്യത ലഭിച്ചത് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഗവ ഇടപെടുമെന്ന് മന്ത്രി മാത്യു

അണക്കെട്ടുകളിൽനിന്ന് മണൽ വാരാൻ നടപടിയെടു ക്കും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ തിരു വല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എൻ കോളേജ് മൂന്നാം സ്ഥാനത്തു ണ്ട്

വൈകിട്ട് സമാ പന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാ ടനം ചെയ്യും കുട്ടികളിലെ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി ചികി ത്സിക്കുന്നതിന് ഗവൺമെന്റ് സമഗ്ര പദ്ധതി നടപ്പാക്കി വരി കയാണെന്ന് മന്ത്രി കെ

ശൈലജ പറഞ്ഞു ഇതിനായി ഏർളി ഇന്റർവെൻഷൻ കേന്ദ്രങ്ങൾ എല്ലാ ജില്ലാ കേന്ദ്ര ങ്ങളിലും ആരംഭിക്കും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ധ്വനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി പട്ടികവർഗ്ഗ പെൺകുട്ടികൾക്കായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മോഡൽ റസിഡൻഷ്യൽ സ്കൂളുക ളിൽ കാസർകോട് പരവനടുക്കം സ്കൂൾ മാതൃകയാ ണെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു സ്കൂളിൽ പുതി യതായി നിർമ്മിച്ച ഹയർ സെക്കൻ്ററി ഹോസ്റ്റൽ കെട്ടി ടവും റസിഡൻഷ്യൽ ഹാളും ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി

മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ സുരക്ഷിതത്വം ലക്ഷ്യമാക്കി മത്സ്യഫെഡ് നടപ്പിലാക്കുന്ന വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതി ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് പത്തുലക്ഷം രൂപയായി

ഭരണസമിതി ചെയർമാൻ പി പി ചിത്തര ഞ്ജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അംഗവൈകല്യത്തിന് പരമാവധി അഞ്ചു ലക്ഷം രൂപയും ആശുപത്രി ചെലവിനത്തിൽ പരമാവധി ഒരു ലക്ഷം രൂപയും ലഭിക്കും തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ പത്മ തീർത്ഥത്തോട് ചേർന്ന കൽകണ്ഡപങ്ങൾ പൊളിച്ച സംഭവത്തെപ്പറ്റി കേന്ദ്ര ഗവൺമെന്റ് ക്ഷേത്രം എക്സി ക്യൂട്ടീവ് ഓഫീസറിൽനിന്ന് ഒരാഴ്ചക്കകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു നൂറ്റാണ്ടുകൾക്കുമുമ്പ് നിർമ്മിച്ച കൽമ ണ് ഡ പ ങ്ങൾ പൈതൃക് സ്വത്താണെന്ന് സ്ഥലം സന്ദർശിച്ച ടൂറിസം ഡയറക്ടർ ജനറൽ സത്യജീത് രാജൻ അഭിപ്രായപ്പെട്ടു കൽമണ്ഡപങ്ങൾ പൊളിച്ച തിനെതിരെ രാജകുടുംബാംഗങ്ങളും വിശ്വാസികളും രംഗത്തെത്തിയിരുന്നു പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിലെ വെള്ളം മീങ്കര ഡാമിലെത്തിച്ച് കുടിവെള്ളമായി വിതരണം ചെയ്യാൻ തീരുമാനമായി മീങ്കര ചുള്ളിയാർ ജലസംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ കലക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്

മണ്ണാർക്കാട് എസ്

ടി സ്പെഷ്യൽ കോടതിയാണ് കേസ് പരി ഗണിക്കുന്നത്

സംഘ്പരിവാർ അജണ്ടയാണ് വിദ്യാഭ്യാസ മേഖല യിൽ കേന്ദ്രം നടപ്പാക്കുന്നതെന്നും ദേശീയ വിദ്യാഭ്യാസ നയങ്ങളിലെ രഹസ്യ അജണ്ട്യെ കരുതിയിരിക്കണ മെന്നും മന്ത്രി എ കെ ശശ്രീന്ദ്രൻ പറഞ്ഞു നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേ ളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഗേൾസ് ഹയർ സെക്കന്ററി സ്കൂളിൽ ഇന്ന് നടക്കും

ടി സിയിൽ ഇന്ന് അന്ധക്ഷേമ പക്ഷാചരണ സമാ പന സമ്മേളനം നടത്തും നേതൃത്വ പരിശീന സെമി നാറും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്

രാവിലെ പി എം ജി ഹയർ സെക്കൻ്ററി സ്കൂളിലാണ് ക്യാമ്പ് മന്ത്രി എ

അട്ടപ്പാടിയിൽ ആദി വാസി യുവാവ് മധു കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി ഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്